ബിഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും മന്ത്രിസഭയിൽ രണ്ട് ഉപമുഖൃമിന്തിമാർ

കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ആരംഭിച്ചു

സമാധാനത്തിന്റെ പ്രതിമ എന്നാണ് രാജസ്ഥാനിലെ പാലിയിലെ ഈ പ്രതിമ അറിയപ്പെടുന്നത് ലോഹങ്ങളടങ്ങിയ അഷ്ടധാതുവിലാണ് നിർമ്മിച്ചിട്ടുള്ളത്

പൌരന്മാർക്ക് വിവര്ങ്ങൾ നൽകുന്നതിലും അവരെ ശാക്തീകരിക്കുന്നതിലും ജനാധിപത്യം സംരക്ഷിക്കുന്നതിലും മാധ്യമങ്ങൾ സുപ്രധാന്മായ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു രാജൃത്തെ മാധൃമങ്ങളുടെ നിരീക്ഷക സ്ഥാപനമായ ഇന്ത്യൻ ്പ്രസ് കൌൺസിലിന്റെ സ്ഥാപന ദിനമാണ് ദേശീയ മാധ്യമ ദിനമായി ആചരിക്കുന്നത് സ്വതന്ത്ര പത്രപ്രവർത്തനം ജനാധിപത്യത്തിന്റെ സവിശേഷതയാണെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവദേക്കർ പറഞ്ഞു നിക്ഷിപ്ത താൽപ്പരൃങ്ങൾക്കുവഴങ്ങി ആരെയും അപകീർത്തിപ്പെടുത്തു ന്നതല്ല് മാധ്യമസ്വാതന്ത്ര്യമെന്നും അദ്ദേഹം ട്വീറ്റ് ചെയ്തു

കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ബി ജെ പി അധ്യക്ഷൻ ജെ പി നദ്ദ എന്നിവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും രണ്ട് ഉപമുഖ്യമന്ത്രിമാരാണ് നിതീഷ് കുമാർ മന്ത്രിസഭയിലുണ്ടാകുക

ജെ

ഇന്നലെ ചേർന്ന എൻ

എ നിയമസഭാ കക്ഷിയോഗത്തിലാണ് ശ്രീ

ചില സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലും ദേശീയ ശരാശരിയേക്കാൾ കുറവാണ് ദശലക്ഷത്തിലെ കണക്കുകളെന്നും മന്ത്രാലയം ടിറ്ററിൽ കുറിച്ചു

അമേരിക്കയിൽ മാത്രം രണ്ടര ലക്ഷത്തോളം പേരാണ് മരിച്ചത്

സഹോദരന്മാരുടെ ക്ഷേമത്തിനും ഐശ്വരൃത്തിനും വേണ്ടി ഈ ദിവസം സഹോദരിമാർ പ്രാർത്ഥിക്കുകയും സഹോദരന്മാർ അവർക്ക് ഉപഹാരങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്യും

സംസ്കൃത ഭാഷയുടെ പ്രോത്സാഹനത്തിനും ജനകീയതയ്ക്കുമായി സുപ്രധാനമായ സംഭാവനകളാണ് അദ്ദേഹം നടത്തിയതെന്ന് പ്രധാനമന്ത്രി ടിറ്ററിൽ കുറിച്ചു

ഭക്തരുടെ സുരക്ഷയെ മുൻനിർത്തി വിപുലമായ ഒരുക്കങ്ങളാണ് ശബരിമലയിലുള്ളത്

തീർഥാടനത്തിന്റെ ആദ്യ രണ്ടു ദിവസങ്ങളിൽ വെർച്ചൽ ക്യൂവിൽ രജിസ്റ്റർ ചെയ്തവരിൽ ദർശനത്തിന് എത്താത്തവരുടെ എണ്ണത്തിന് ആനുപാതികമായി അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ തീർത്ഥാടകരെ അനുവദിക്കുമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അറിയിച്ചു

ഷിർദിയിലെ സായിബാബ ക്ഷേത്രം പന്തർപൂരിലെ വിത്തൽ മന്ദിർ തുൾജ ഭവാനി ക്ഷേത്രം എന്നിവ ഇന്ന് രാവിലെ തുറന്നു

ജമ്മു ചണ്ഡിഗഡ് മസൂറി കുളു ഷിംല ഹരിദ്വാർ ്നൈനിറ്റാൽ തുടങ്ങി ഉത്തരേന്തൃയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇടത്തരം സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ബാരമുള്ള ശ്രീനഗർ ലേ ബദരീനാഥ് എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാകുന്നുണ്ട് ഇന്നലെ രാത്രി പെയ്ത മഴ ഡൽഹിയിലെ അന്തരീക്ഷ ഗുണനിലവാരം അല്പം മെച്ചപ്പെടുത്തിയിട്ടുണ്ട്

ലാഹൌൽ സ്പിതി കിനൌർ ചമ്പ കുളു കാൺഗ്ര ജില്ലകളിൽ മഞ്ഞുവീഴ്ചയുണ്ട്

അതേസമയം ഇന്നലെ മഴ പെയ്ത്തൂർ കാറ്റിന്റെ ്വേഗത വർധിച്ചതും അന്തരീക്ഷ ഗുണന്റില്പ്പാ്രം അതീവ ഗുരുതര സ്ഥിതിയിൽ നിന്നും മെച്ചപ്പെടുത്താൻ ് ഇടയാക്കിയിട്ടുണ്ട്

രക്തസാക്ഷിത്വം വരിച്ച ബിർസാ മുണ്ടയുടെ ജന്മവാർഷിക ദിനമായ ഇന്നലെ ഭോപ്പാലിലെ ഗിരിവർഗ്ഗ മ്യൂസിയത്തിൽ നടന്ന ചടങ്ങിലാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇത് സംബന്ധിച്ച് പ്രഖ്യാപനം നടത്തിയത്

ആഗോള മനുഷ്യാവകാശങ്ങളും മറ്റുള്ളവരുടെ അടിസ്ഥാന തലത്തിലുള്ള സ്വാതന്ത്ര്യവും അംഗീകരിക്കലാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്